ഐ സി സി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ശ്രീലങ്ക ബംഗ്ലാദേശിനെ നേരിടും

കൂടുതൽ വിവരങ്ങളുമായി അർച്ചന

പ്രധാനമന്ത്രിക്ക് ലഭിച്ച ക്ഷണം ഇരു നേതാക്കളും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റേയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സഹകരണം ദൃഢമാക്കുമെന്നതിന്റേയും ഇന്ത്യ മുഖ്യ സാമ്പത്തിക ശക്തിയാണ് എന്ന തിരിച്ചറിവിന്റേയും പ്രതിഫലനമാണെന്നും വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു

കൃഷി വ്യവസായം വ്യാപാരം തുടങ്ങിയ മേഖലകളിലെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് കാർഷിക രംഗത്തെ സംഘടനകളുമായും കാർഷിക സാമ്പത്തിക വിദഗ്ധരുമായും കേന്ദ്രമന്ത്രി ചർച്ച നടത്തും കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തുന്നതിനും വരുമാനം ഇരട്ടിയാക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ ആരായും ജൂലൈ അഞ്ചിനാണ് കേന്ദ്ര ബജറ്റ് വൃവസായ വാണിജൃ മേഖലയിലെ വിദഗ്ധരുമായും കേന്ദ്രമന്ത്രി ഇന്ന് ചർച്ച നടത്തും

അഴിമതിയും തട്ടിപ്പും നടത്തിയെന്ന ഗുരുതരമായ ആരോപണങ്ങളെ തുടർന്നാണ് നടപടി നോയിഡയിൽ കമ്മീഷണർ പദവിയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വകുപ്പിലെ തന്നെ രണ്ടു വനിതാ ഉദ്യോഗസ്ഥരെ ലൈംഗികമായി അപമാനിക്കാൻ ശ്രമിച്ചതായി പരാതി ലഭിച്ചിരുന്നു

ജസ്റ്റിസുമാരായ ഇന്ദിര ബാനർജി അജയ് റൂസ്തോഗി എന്നിവരുൾപ്പെട്ട അവധിക്കാല ബഞ്ചാണ് കേസ് പരിഗണ്ണീച്ചത്ത് സ്വാതന്ത്ര്യ അവകാശം മൌലിക അവകാശമാണെന്നും അതിൽ വിലപേശൽ നടത്താനാവിില്ലെന്നും ബഞ്ച് വൃക്തമാക്കി

ഇന്ന് രാവിലെ ഷോപ്പിയാൻ ജില്ലയിലെ അവ്നീരാ സൈനാപുരാ മേഖലയിലായിരുന്നു ഏറ്റുമുട്ടൽ കൊല്ലപ്പെട്ടവരെ തിരിച്ചറിഞ്ഞിട്ടില്ല സുരക്ഷാസേന മേഖലയിൽ രാത്രി പട്രോളിംഗ് നടത്തവേയാണ് ഭീകരരെ വധിച്ചതെന്ന് സൈനിക വൃത്തങ്ങൾ പറഞ്ഞു

കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ ന്യൂഡൽഹിയിൽ യാത്രയ്ക്ക് പച്ചക്ക്കാടി കാട്ടി ഉത്തരാഖണ്ഡിലെ ലിപുലേഖ്പാസ്സ് സിക്കിമിലെ നാതുല പാസ് എന്നീ യാത്രാവഴികളാണ് മൻസ്സര്ക്വറിലേക്കുള്ളത്

രണ്ടു ദിവസം മുമ്പ് ഉത്തർപ്രദേശിന്റെ ചില മേഖലകളിൽ കനത്ത മഴയും ഇടിമിന്നലുമുണ്ടായി

യു പി എ ഗവൺമെന്റിൽ സിവിൽ വ്യോമയാന മന്ത്രിയായിരിക്കെ എയർ ഇന്ത്യയ്ക്ക് കോടിക്കണക്കിന് നഷ്ടം വരുത്തിയ അഴിമതി കേസിലാണ് ശ്രീ പട്ടേലിനെ എൻഫോഴ്സ്മെന്റ് വിഭാഗം ചോദ്യം ചെയ്ത് വരുന്നത് ഇന്നലെ ആരംഭിച്ച മൊഴി രേഖപ്പെടുത്തൽ ഇന്നും തുടരുമെന്ന് എൻഫോഴ്സ്മെന്റ് വൃത്തങ്ങൾ അറിയിച്ചു അന്തർദേശീയ വിമാനങ്ങൾക്ക് സർവ്വീസ് നടത്താൻ സമയക്രമം അനുവദിച്ചു നൽകിയതിലുള്ള ക്രമക്കേടുകൾ എയർ ഇന്ത്യയ്ക്ക് കോടിക്കണക്കിന് നഷ്ടമുണ്ടാക്കിയതായാണ് എൻഫോഴ്സ്മെന്റ് വിഭാഗം രജിസ്റ്റർ ചെയ്ത ക്രിമിൽ കേസ്

്ഷേമ അഹുജ ഭക്തി മെഹർ അങ്കിത ഖണ്ടേൽവാൾ എന്നിവരാണ് കേസിൽ അറസ്റ്റിലായത്

നായർ ആശുപത്രിയിൽവച്ച് മൂഷരും നടത്തിയ ജാതീയ അധിക്ഷേപത്തെ തുടർന്നാണ് കഴിഞ്ഞമാസം ഡോക്ടർ പായൽ താഡ്വി ആത്മഹത്യ ചെയ്തതായി കേസ് നിലനിൽക്കുന്നത് പട്ടിക വിഭാഗക്കാർക്കെതിരായ അതിക്രമം തടയൽ നിയമ പ്രകാരമാണ് ഡോക്ടർമാർക്കെതിരെയുള്ള കേസ്

ഫ്രാൻസിൽ നടക്കുന്ന ഫിഫ വനിതാ ലോക കപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സ് ഇന്ന് ന്യൂസിലന്റിനെ നേരിടും ചിലി സ്വീഡൻ യു എസ് തായ്ലന്റ് മത്സരങ്ങളും ഇന്നാണ് ഒരു റിപ്പോർട്ട്

മൂന്ന് മത്സരങ്ങൾ വീതം ഇരു ടീമുകളും കളിച്ചിട്ടുണ്ട് ഒരു മത്സരം ജയിക്കുകയും ഒരെണ്ണം തോൽക്കുകയും ഒരെണ്ണം ഫലമറിയാതെ അവസാനിക്കുകയും ചെയ്ത ശ്രീലങ്ക പോയിന്റ് പട്ടികയിൽ ആറാമതാണ് ഒരു മത്സരം ജയിക്കുകയും രണ്ടെണ്ണം തോൽക്കുകയും ചെയ്ത ബംഗ്ലാദേശ് എട്ടാമതാണ് ന്യൂസിലാന്റാണ് പോയിന്റ് പട്ടികയിൽ മുന്നിൽ

മത്സര രംഗത്തുളള യു എസ് മൂന്ന് തവണ ജ്ട്രോക്കളായവരാണ്

ഡോഗോൺ വർഗ്ഗക്കാർ അധിവസിക്കുന്ന ഗ്രാമമാണ് ഇത് പ്രാദേശിക സമയം പുലർച്ചെ മൂന്ന് മണിക്കാണ് ഗ്രാമത്തിൽ തീവ്രവാദി വെടിവെയ്പ് നടത്തിയതെന്ന് ഗവൺമെന്റ് വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു